സർക്കാരുകളും വൃവസായ മേഖലയും തമ്മിലുള്ള സഹകരണം വർധിപ്പിക്കാനുള്ള അവസരം കൂടിയായി കോവിഡ് കാലഘട്ടം മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമൻ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

ഐ ഐ യുടെ സമ്മേളനത്തിൽ വെർച്യൂൽ അഭിസംബോധന നടത്തുകയായിരുന്നു ധനമന്ത്രി

വൃവസായ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ മനസിലാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് രാജ്യത്തെ ബാങ്കുകൾക്ക് അവശ്യമായ പിന്തുണ ഉറപ്പാക്കാൻ ആർ

ഐ യുമായി ചേർന്ന് സർക്കാർ പ്രവർത്തിക്കുകയാണെന്നും ശ്രീമതി നിർമല സീതാരാമൻ പറഞ്ഞു

ഇതിൽ ഒന്നര ലക്ഷത്തോളം പ്രേരാണ് മരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

ഇതിനൊപ്പം യുവാക്കളുടെ നൈപുണ്യ വികസനവും ലക്ഷ്യമിടുന്നതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിലപ്പെട്ട ഫയലുകളൊന്നും നശിച്ചിട്ടില്ല ഡൽഹി കേരള ഹൌസ് ഉൾപ്പെടെയുള്ളി സർക്കാർ അഗതി മന്ദിരങ്ങളിലെ ബുക്കിങ് ഉൾപ്പെടെയുള്ള ചില കടലാസുകളാണ് നശിച്ചത്

ഒരു കമ്പ്യൂട്ടറിന്റെ ഭാഗത്തുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിത്തതിന് കാർണമായത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ചീഫ് സെക്രട്ട്രി വിശ്വാസ് മേത്ത അറിയിച്ചു

ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സർക്കാരിന്റെ സേവനങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുന്നതിനും സ്തുത്യർഹമായ സേവനം നൽകുന്നി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കാണ് ഈ അവാർഡ് സമ്മാനിക്കുന്നത്

അപകടത്തിൽ നിരവധി മൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഈ മേഖലയിൽ മണ്ണിടിച്ചിൽ ശക്തമായി തുടരുകയാണ്

ന്യൂഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ പുതിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ്ട് ജീവൻ നിലനിർത്തുന്നത് ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം തൃപ്തികരമാണെന്നും ബുള്ളറ്റിൻ വ്യക്തമാക്കി

പത്തു വർഷം പഴക്കമുള്ള അഞ്ചുനില കെട്ടിടമാണ് ഇന്നലെ തകർന്നുവീണത്

ഡ്രോണുകളും അത്യാധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് അപകടം ഉണ്ടായ ഉടൻ തന്നെ ദൂരന്തനിവാരണ സേനയും പോലീസും അഗ്നി അക്ഷാ സെനയും സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾ ഉടൻതന്നെ ആരംഭിക്കുകയും ആയിരുന്നു അതിനിടെ കെട്ടിട ഉടമകൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഗവൺമെന്റ് ശക്തമായ നടപടികൾ എടുക്കുമെന്ന മഹാരാഷ്ട്ര നഗരവികസന മന്ത്രി ഏകനാഥ് ഷിൻഡെ പറഞ്ഞു

വിശദാംശങ്ങളുമായി നരേന്ദ്രമോഹൻ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിനായി ആക്ഷൻ പ്പാൻ രൂപീകരിച്ചതായും മന്ത്രി പറഞ്ഞു പ്രതിദിന കേസുകൾ നിയന്ത്രിക്കണമെന്നും രോഗബാധ ഉണ്ടാകാത്ത സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതെ നോക്കുക എന്നതാണ് ആക്ഷൻ പ്പാനിൽ ഉദ്ദേശിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു മരണ നിരക്ക് പ്രമാവധി കുറക്കുക അതിനായി സോണുകളിലെ ജനകീയ ഇടപെടൽ ശക്തമാക്കുക വാർഡുതല സമിതികൾ റെസിഡൻസ് അസോസിയേഷൻ സ്ന്നദ്ധ പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി പ്രവർത്തനങ്ങൾ ശക്തമാക്കുക തുടങ്ങിയി നിർദ്ദേശങ്ങളും ആക്ഷൻ പ്പാനിൽ ഉണ്ട് കേസുകൾ വർധിക്കുന്ന സാഹചര്യത്തിൽ സി എഫ് എൽ ടി സി കൾ കൂടുതൽ സജ്ജമാക്കും എന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവ്ജ്യോത് ഖോസ പറഞ്ഞു

അവശ്യ സേവനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്

എസ് ഘടിപ്പിക്കുന്നതിൽ നിന്നും ഒഴിവാക്കാൻ ഗതാഗതമന്ത്രി എ

ശശീന്ദ്രൻ ഗതാഗത കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി

ഇതുസംബന്ധിച്ച പ്രാഥമിക പ്രപ്രീക്ഷണ ഫലങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്